ഇന്നാരംഭിക്കുന്ന രണ്ടുദിവ സത്തെ ഉച്ചകോടിയിൽ ഉഭയകക്ഷി ബന്ധങ്ങളിലെ പുരോഗതിയും നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതും ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസെ ആബെ യുമായി നരേന്ദ്രമോദി ചർച്ച ചെയ്യും പ്രതിരോധം മേഖലാ സുരക്ഷ തുട ങ്ങിയ കാര്യങ്ങളും ഉച്ചകോടിയിൽ ചർച്ചാവിഷയമാകും ഇന്ത്യയും ജപ്പാനും തമ്മിൽ സൌഹൃദം ഊട്ടിയുറപ്പിക്കാൻ സന്ദർശനം സഹായകമാകുമെന്ന് മോദി ട്വിറ്ററിൽ അറിയിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും കേരളം കൈവരിച്ച ഉന്നതിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ സംഭാവനകൾ വിസ്മരിക്കാനാവില്ലെന്ന് ബി

പി അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു കാലിക വിഷയങ്ങളിൽ സമൂഹത്തിന് ശക്ത മായ സന്ദേശങ്ങളാണ് ഗുരുദേവൻ നൽകിയതെന്ന് അദ്ദേഹം അഭിപ്രായ പ്പെട്ടു ശിവഗിരിയിൽ ഗുരുദേവ മഹാസമാധി നവതിയോടനുബന്ധിച്ച് സംഘ ടിപ്പിച്ച മഹാമണ്ഡല പൂജാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉപനിഷത് തത്വങ്ങൾ ലളിതമായ ഭാഷയിൽ നിർവചിച്ച് സമൂഹ ത്തിന്റെ താഴെത്തട്ടിലെത്തിക്കുന്നതിൽ ഗുരു ദേവൻ വിജയിച്ചു വെന്ന് അമിത്ഷാ പറഞ്ഞു

പി യോഗവും ശിവഗിരി മഠവും ചേർന്ന് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിന് ്നൽകിയ് സേവനങ്ങൾ പ്രശംസനീയമാണ് അനേകം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും പ്രതിഷ്ഠ നട ത്തുകയും ചെയ്ത ഗുരുദേവൻ സമ്പൂർണ്ണ സന്യാസിയായിരുന്നുവെന്നും ബി

പി അധ്യക്ഷൻ പറഞ്ഞു ദരവ്ട്ട്ട്ട്ട്ട്ട്ട്ട ശബരിമല യുവതീ പ്രവേശനത്തിനെതിരെ നാമജപ ഘോഷയാത്രകളിൽ പങ്കെടുത്തവരെ അറസ്റ്റ് ചെയ്യരുതെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകി വിശദ പരിശോധനക്ക് ശേഷം മാത്രമേ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ദർവ്വെടുക ശബരിമലയിൽ യുവതികൾക്ക് പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ട അറസ്റ്റ് തുടരുന്നു

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ശബരിമല മാസ്റ്റർ പ്ലാൻ സമയബന്ധിതമായി തീർപ്പാക്കുന്നില്ലെന്ന് കാണിച്ച് ഗ്രീൻ കമ്മ്യൂണിറ്റി പരിസ്ഥിതി സംഘടന സമർപ്പിച്ച പരാതി അന്വേ ഷിക്കുന്നതിന് സുപ്രീംകോടതി നിയോഗിച്ച എംപവേർഡ് കമ്മിറ്റിയുടെ പരി ശോധന നിലയ്ക്കലിൽ ആരംഭിച്ചു മാസ്റ്റർ പ്ലാനിലെ നിർദ്ദേശങ്ങൾ ലംഘി ച്ചതിനെതിരെയും പ്താൻ നടത്തിപ്പ് വൈകുന്നതിലും ദേവസം ബോർഡിനെ കമ്മിറ്റി അതൃപ്തി അറിയിച്ചു

ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരുക്ക ങ്ങൾ നടത്തി മുന്നോട്ടുപോകുന്ന ദേവസ്വം ബോർഡിനെ തകർക്കാനുള്ള അജണ്ടയാണ് ഇത്തരം വാർത്തകൾക്ക് ആധാരമെന്ന് അദ്ദേഹം തിരുവനന്ത പുരത്ത് പറഞ്ഞു

എസ് നേതൃത്വത്തിന്റെ പ്രസ്താ വന അടിയന്തരാവസ്ഥയെ കുറച്ചുകാണിക്കുന്നതാണെന്ന് സി

എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആലപ്പുഴയിൽ പറഞ്ഞു ജപം നടത്തിയശേഷം അക്രമത്തിന് ശ്രമിച്ചാൽ നോക്കിനിൽക്കാനാവി ല്ലെന്നും നിയമവിരുദ്ധമായി പ്രകടനം നടത്തിയാൽ കേസുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ദൃഭ വിമോചന സമരം പ്രതീക്ഷിച്ച് കോൺഗ്രസ് സംഘ്പരിവാറിന് പിന്നാലെ പോവുകയാണെന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ വി എസ് അച്യു താനന്ദൻ പറഞ്ഞു വിശ്വാസത്തിന്റെ പേരുപറഞ്ഞ് ഏത് ദുരാചാരവും ആകാ മെന്ന താല്പര്യത്തിന് ഒപ്പം നിൽക്കരുതെന്നും വി എസ് പറഞ്ഞു ചേർത്ത ലയിൽ പുന്നപ്ര വയലാർ സമരത്തിന്റെ വാർഷിക വാരാചരണ പരിപാടിക ളുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എഫ് ഗവൺമെന്റ് ആരാധനക്കോ വിശ്വാസങ്ങൾക്കോ എതി രല്ലെന്ന് സി

ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ചേർത്തലയിൽ പറഞ്ഞു വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും ഒരുപോലെ ഭരണഘ ടന അനുവദിക്കുന്ന സ്വാതന്ത്രൃം ലഭിക്കാനാണ് ഗവൺമെന്റിന്റെ ശ്രമമെന്ന് അദ്ദേഹം പറഞ്ഞു

പരിപാ ടിയുടെ മലയാള പരിഭാഷ ഇതേ തുടർന്ന് കേൾക്കാം രാത്രി എട്ടിന് ഇതിന്റെ പുനഃപ്രക്ഷേപണമുണ്ടാകും ആകാശവാണിക്കും ദൂരദർശനും പുറമെ പ്രധാ നമന്ത്രിയുടെ ഓഫീസിന്റെയും വാർത്താവിതരണ മന്ത്രാലയത്തിന്റെയും യു ട്യൂബ് ചാനലുകളിലും പരിപാടി ലഭ്യമാകും

പി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ മദൻലാൽ ഖുറാന അന്തരിച്ചു

മദൻലാൽ ഖുറാനയുടെ നിര്യാണത്തിൽ ബി

പി അധ്യക്ഷൻ അമിത്ഷായും കേന്ദ്രമന്ത്രിമാരും അനുശോചിച്ചു ദർവ്വട്ടെഴ അടുത്ത സാമ്പത്തിക വർഷം കാർഷിക മേഖലയിൽ വിപുലമായ കർമ്മ പദ്ധതികൾക്ക് രൂപംനൽകുമെന്ന് മന്ത്രി വി

കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ കർഷകരിലേക്ക് ഇറങ്ങിചെന്ന് പ്രവർത്തിക്കണമെന്നും കർഷകർ കൃഷിക്ക് നിർബന്ധമായും ഇൻഷൂറൻസ് എടുക്കണമെന്നും മന്ത്രി പറഞ്ഞു പ്രളയാനന്തരം കാർഷിക മേഖലയുടെ വീണ്ടെടുപ്പിന് കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യ ത്തിൽ കുരുമുളക് തൈ വിതരണം ഇടുക്കി രാജമുടിയിൽ ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി രദേശ്ശേ സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ മൈക്രോ ക്രഡിറ്റ് വായ്പാ പദ്ധതിയിൽ ഇതേവരെ മൂവായിരം കോടി രൂപയോളം വിതരണം ചെയ്തതായി മന്ത്രി എ

പദ്ധതി പ്രകാരം കോഴിക്കോട് ജില്ലയിലെ നാല് കുടുംബശ്രീ സി ഡി

മലപ്പുറം ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിലെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യവെയാണ് മന്ത്രി ഇക്കാര്യം വൃക്തമാക്കിയത്

ചാമ്പ്യൻ സ്കൂൾ പദവിക്കുവേണ്ടി കോതമംഗലത്തെ സ്കൂളുകളായ സെന്റ് ജോർജ്ജും മാർബേസിലും തമ്മിലാണ് പോരാട്ടം

സി കേരള ആദ്യമത്സരത്തിൽ മോഹൻബഗാനെ സമനിലയിൽ തളച്ചു കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡി യത്തിൽ നടന്ന മത്സരത്തിൽ ഇരുടീമുകളും ഓരോ ഗോൾ നേടി

എൽ ഫൂട്ബോളിൽ മുംബൈ സിറ്റി എഫ് സി ക്ക് ജയം മുംബൈയിൽ നടന്ന മത്സരത്തിൽ ഡൽഹി ഡൈനാമോസിനെ ഏകപക്ഷീ യമായ രണ്ട് ഗോളിനാണ് അവർ തോൽപ്പിച്ചത് രദേഷ്ടെടു തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സർവകലാശാലയിൽ നടക്കുന്ന ദക്ഷിണ മേഖലാ അന്തർ സർവകലാശാലാ പുരുഷ ഖൊ ഖൊ ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സെമിയിൽ പ്രവേശിച്ചു ക്വാർട്ടർ ഫൈനലിൽ ആന്ധ്ര സർവകലാശാലയെ ഒരു ഇന്നിംഗ്സിനും ആറ് പോയിന്റിനുമാണ് കാലിക്കറ്റ് പരാജയപ്പെടുത്തിയത് ഇതോടെ മുംബൈ സർവകലാശാലയിൽ നടക്കുന്ന അഖിലേന്തൃാ അന്തർ സർവകലാശാലാ ചാമ്പൃൻഷിപ്പിന് കാലിക്കറ്റ് യോഗ്യത നേടി

തിരുവാതിര ചിത്രീകരണം സംഘഗാനം കഥാകഥനം ട എന്നീ മത്സരങ്ങളാണ് ഇന്ന് നടക്കുക രദേഷ്ടങ ചേളാരി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പാചകവാതക ഫില്ലിങ് പ്ലാന്റിന് പഞ്ചായത്ത് നൽകിയ ലൈസൻസ് റദ്ദാക്കാൻ തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചു

പ്രവർത്തനം സംബന്ധിച്ച് അന്വേഷണം നടത്തിയ പഞ്ചായത്ത് ഉപസമിതി നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം തീരുമാനത്തിൽ ഭരണസമിതിയിലെ സി

എം അംഗങ്ങൾ വിയോജിച്ചു

അപകടത്തെ തുടർന്ന് കഴിഞ്ഞ രണ്ടുദിവ സമായി ഈ സർവീസ് മുടങ്ങിയിരുന്നു രി കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുന്നതോടെ കണ്ണൂർ കേന്ദ്രീ കരിച്ച് കൂടുതൽ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു

ഇതിനായി നിരവധി ക്ലസ്റ്ററുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറി യിച്ചു കണ്ണൂർ വിമാനത്താവളവും ഉത്തരകേരളത്തിന്റെ വികസനവും എന്ന വിഷയത്തിൽ മാതൃഭൂമിയും നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സും ചേർന്ന് കണ്ണൂരിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടം ചെയ്യുകയായിരുന്നു മന്ത്രി ദർവ്വഹി സംസ്ഥാനത്തെ ലാൻഡ് ട്രൈബ്യൂണലുകളിൽ കെട്ടിക്കിടക്കുന്ന രണ്ടേകാൽ ഘക്ഷത്തോളം പട്ടയ അപേക്ഷകളിൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു പാലക്കാട് ചിറ്റൂർ താലൂക്കിലെ രണ്ട് വില്ലേജ് ഓഫീസുകളുടെ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രണ്ടു മാസത്തിനുള്ളിൽ ജില്ലകൾ തോറും പട്ടയമേളകൾ സംഘടിപ്പിച്ച് ഒരു ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു

കോലയാറിന്റെ രണ്ടാംഘട്ട പുന രുജ്ജീവന പദ്ധതിയിലെ ഗവൺമെന്റ് തല പ്രവർത്തനങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം പത്തനംതിട്ട നിരണത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി

കല ക്ടറേറ്റിൽ എത്തുന്നവർക്ക് സൌജനൃമായി ഇന്റർനെറ്റ് സൌകരൃം ലഭിക്കും

രുട്ട്ട്ട്ട്ട്ട്ട്ട്ട സ്വാമി സന്ദീപാനന്ദഗിരിക്ക് എതിരായ ആക്രമണം അപലപനീയവും ഒറ്റ ക്കെട്ടായി ചെറുക്കേണ്ട തിന്മയുമാണെന്ന് മുസ്ലിംലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

എ മജീദ് പറഞ്ഞു കേരളത്തെ സംഘർഷഭൂമിയാക്കി മുത ലെടുക്കാനുള്ള സി

എം ബി

പി ഒത്തുകളിയുടെ ഭാഗമാണിതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി കോൺഗ്രസ് മുക്തഭാരതം എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിന് കേരളത്തിൽ സി

എമ്മുമായി രഹസ്യബാ ന്ധവത്തിലാണ് ബി

പി യെന്നും മജീദ് കുറ്റപ്പെടുത്തി